കോഴിക്കോട് കട്ടിപ്പാറയിൽ കാണാതായ ആറ് പേർക്കായി തെരച്ചിൽ തുടരുന്നു

പോർച്ചുഗൽ സ്പെയിൻ മത്സരം സമനിലയിൽ പിരിഞ്ഞു

കോഴിക്കോട് കട്ടിപ്പാറയിലെ ഉരുൾപ്പൊട്ടലിൽ മാത്രം എട്ട് പേർ മരിച്ചു

ഡോക്സ്കാഡും ദുരന്ത നിവാ രണ സേനയും പൊലീസും ഫയർഫോഴ്സും സംയു ക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസ ങ്ങളിലെ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായതോടെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർണതോതിലാ യിട്ടുണ്ട്

വയ നാട് ചുരം വഴി വാഹനഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടി രിക്കുകയാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളും കുറ്റ്യാടി പക്രംതളം ചുരം വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്

ജില്ല യിൽ മഴയുടെ ശക്തി കുറഞ്ഞതായാണ് റിപ്പോർട്ട്

ലലലലലലലലലലലല വെളളപ്പൊക്കത്തിൽ പത്തനംതിട്ട അപ്പർ കൂട്ടനാട് മേഖലയിലെ ഗ്രാമീണ റോഡുകൾ വെളളത്തിനടിയിലാ യി

ഇതോടെ കണ്ണൂർ നഗരത്തിലെ കുടി വെള്ള വിതരണം തടസ്സപ്പെട്ടു

അഞ്ച് ദിവസം അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം തുറന്നു മാട്ടുപെട്ടി കുണ്ടള ജലാശയങ്ങളിൽ നിർത്തിവച്ചിരുന്ന ബോട്ടിംഗും പുനരാരംഭിച്ചു

വീടുകളിലെ ജോലിക്കാരുടെ വിവരങ്ങളും ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണവും നല്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എ ഡി ജി പി സുധേഷ് കുമാറിന്റെ മകൾ പൊലീസ് ഡ്രൈവറെ മർദ്ദിച്ചെന്ന കേസിൽ അന്വേഷണ ചുമതല ഡി വൈ എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് ക്യാമ്പ് ഫോളോവേഴ്സ് എന്ന പേരിൽ പൊലീസു കാരെക്കൊണ്ട് ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ജോലി ചെയ്യിക്കുന്നത് അംഗീകരിക്കാനാവി ല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഉന്നത ഉദ്യോഗസ്ഥർക്ക് വീട്ടുപണി ചെയ്യാൻ ഇവരെ ഉപയോഗിക്കില്ലെന്ന ഉറപ്പ് ലംഘിച്ച മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നല്കു മെന്നും നോട്ടീസ് അറിയിച്ചു പൊലീസുകാരെക്കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്ക ണമെന്നും പ്രതിപക്ഷനേതാവ് ആവശ്യപ്പെട്ടു

റംസാൻ മാസത്തിൽ നിർത്തിവെച്ച സൈനിക നടപടികൾ ഏതാനും ദിവസം കൂടി തുടരാൻ കേന്ദ്രം തീരുമാനിച്ചി ട്ടുണ്ട് മുതിർന്ന മാധ്യ മ പ്ര വർത്ത കൻ ഷു ജാത് ബുഖാരിയുടെ കൊലപാതകവും പ്രധാനമന്ത്രിയും ആഭ്യ ന്തര മന്ത്രിയും ചർച്ച ചെയ്തു

പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗ ത്തിൽ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും കഴിഞ്ഞ വർഷത്തെ പദ്ധ തി പ്ര വർത്ത ന ങ്ങളും വരാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും യോഗം അവലോകനം ചെയ്യും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒൻപത് ദിവസത്തെ ഗ്രീസ് സുറിനാം ക്യൂബ സന്ദർശനത്തിന് ഇന്ന് രാവിലെ യാത്ര തിരിക്കും ഗ്രീക്ക് പ്രസിഡണ്ട് പ്രോകോപിസ് പാവ്ലോ പൌലോസ് സുറിനാം പ്രസിഡണ്ട് ഡിസേർ ഡെലാനൊ ബോട്ടേഴ്സ് തുടങ്ങി യവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര സഹ മന്ത്രി വിഷ്ണുദേവ് സായ് ഏതാനും പാർലിമെന്റ് അംഗ ങ്ങൾ തുടങ്ങിയവർ രാഷ്ട്രപതിയുടെ സംഘത്തിലുണ്ട് ലലലലലലലലലലലല പ്രശസ്ത മാധ്യമപ്രവർത്തക ഗൌരിലങ്കേഷിനെ കൊല പ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം പ്രഅറസ്റ്റിലായ പരശുറാം വാക്മിറെ ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തി ഗൌരിൽങ്കേഷിനെയും ഗോവിന്ദ് പൻസാരെയെയും കൽബുർഗിയെയും കൊല പ്പെടുത്തിയത് ഒരേ തരം തോക്ക് ഉപയോഗിച്ചാണെന്നും പ്രത്യേക അന്വേഷണസംഘത്തിലെ മുതിർന്ന ഉദ്യോ ഗസ്ഥൻ ബെങ്കലൂരുവിൽ അറിയിച്ചു

മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതാ യിരുന്നു കുമാരസ്വാമി

സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനവും ഡാമിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനവും സമിതി വിലയിരുത്തി കാലവർഷം കനത്തോടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിലാണ് ഉപസമിതി സന്ദർശനം നടത്തിയത് ഇന്നലെ രാവിലെ അണക്കെട്ടിലെത്തിയ സംഘം ജലനിരപ്പ് സ്വീപ്പേജ് വെള്ളത്തിന്റെ അളവ് എന്നിവ രേഖപ്പെടുത്തി ഡാമിലെയും ഗാലറിയിലേയും തമിഴ്നാട് സ്ഥാപിച്ച ഉപകരണങ്ങളുടെയും പ്രവർത്തനവും സമിതി വിലയിരുത്തി

നാല് ചതുശ്ശത ങ്ങളിൽ ആദ്യത്തെ തിരുവാതിര ചതുശ്ശതം ഇന്നലെ യായിരുന്നു വൈശാഖോൽസവത്തിലെ മറ്റൊരു ചടങ്ങായ തൃക്കൂർ അരിയളവും ഇന്നാണ്

മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഒല്ലൂരിനും തൃശ്ശൂരിനുമിടയിൽ രണ്ടര മണിക്കൂറോളം വൈകും

കെ ബാലൻ തറക്കല്ലിടും ആറ് കോടി രൂപ ചെല വിൽ പട്ടികജാതി വികസന വകുപ്പാണ് കോളജും ഹോസ്റ്റ്ലും നിർമ്മിക്കുന്നത് ലലലലലലലലലലലല സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി രൂപീകരിച്ച പിങ്ക് പൊലീസിന്റെ പ്രവർത്തനത്തിന് ഇന്ന് പാലക്കാട് ജില്ലയിൽ തുടക്കമാകും ജില്ലാപൊലീസ് ആസ്ഥാനത്ത് രാവിലെ മന്ത്രി എ കെ ബാലൻ ഉദ്ഘാ ടനം ചെയ്യും

ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി

ആചാര അനുഷ്ഠാന ത്തിൽ വീഴ്ച സംഭവിച്ചതായി ദേവപ്രശ്ന ചിന്തയിൽ തെളിഞ്ഞു ദേവപ്രശ്നം നാളെ പൂർത്തിയാകും

കൊല്ലം പ്രസ്ക്ല ബ്ബിൽ ചാത്തന്നൂർ മോഹൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ